ബിഹാർ വികസനത്തിന് വഴിതെളിക്കുന്ന ഈ പദ്ധതികൾ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കും സഹായകരമാകും സമീപ സംസ്ഥാനങ്ങളായ ഉത്തർപ്രദേശിലേയ്ക്കുംജാർഖണ്ഡിലേയ്ക്കുമുള്ള വ്യക്തികളുടെയും ചരക്കുകളുടെയും നീക്കവും ഇത് സുഗമമാക്കും

ബിഹാറിലെ മൂന്ന് പ്രധാന പാലങ്ങളുടെ നിർമ്മാണ് ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിച്ചു

എം അംഗങ്ങളായ എളമരം കരീം കെ

കേന്ദ്ര പാർലമെന്ററികാര്യ സഹമന്ത്രി വി മുരളീധരനാണ് അംഗങ്ങൾക്കെതിരെ അച്ചടക്ക നടപടി ആവശ്യപ്പെട്ടുള്ള പ്രമേയം സഭയിൽ അവതരിപ്പിച്ചത് പ്രമേയത്തിന് ശബ്ദവോട്ടിലൂടെ അംഗീകാരം ലഭിച്ചതോടെ സഭാധ്യക്ഷൻ എം

കാർഷിക ബില്ല് പാസാക്കുന്നതിനിടെ ഇന്നലെ സഭയിൽ ഉണ്ടായ സംഭവങ്ങൾ തികച്ചും ദൌർഭാഗൃകരമായിരുന്നുവെന്ന് എം

പ്രതിഷേധത്തിനിടെ ചില അംഗങ്ങൾ സഭാ ഉപാധ്യക്ഷനെതിരെ സഭാചട്ടങ്ങൾക്ക് വിരുദ്ധമായ പരാമർശങ്ങൾ നടത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് അംഗങ്ങൾ പ്രതിഷേധിച്ചതെന്നും ശ്രീ എം

പ്രതിപക്ഷത്തിന്റെ സഹകരണമാണ് പാർലമെന്റ് നടപടികൾ സുഗമമായി നടത്താൻ സഹായിക്കുന്നത് നിക്ഷിപ്ത രാഷ്ട്രീയ താത്പരൃം വച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ആരോഗ്യകരമായ ജനാധിപതൃമാണോയെന്ന് വിലയിരുത്തണമെന്നും ആദ്ദേഹം ആവശ്യപ്പെട്ടു

കേന്ദ്ര കൃഷി മന്ത്രി നരേന്ദ്രസിംഗ് തോമർ ലോക്സഭയിൽ രേഖാമൂലം അറിയിച്ചതാണിത്

പ്രതാപൻ എം

കിഴക്കൻ ലഡാക്കിലെ യഥാർത്ഥ നിയന്ത്രണ രേഖയ്ക്ക് സമീപം മോൾഡോയിലായിരിക്കും ചർച്ചു യാഥാർത്ഥ നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള സംഘർഷ മേഖലകളിൽ നിന്ന് സൈനിക പിൻമാറ്റത്തിന് ലക്ഷ്യമിടുന്ന അഞ്ചിന വൃവസ്ഥകളുടെ അടിസ്ഥാനമാക്കിയായിരിക്കും ചർച്ചകൾ പുരോഗമിക്കുക സംഘർഷം ആരംഭിച്ച ശേഷമുള്ള ആറാം വട്ട കമാൻഡർതല ചർച്ചയാണിത്

ചില റൂട്ടുകളിൽ കൂടുതൽ സർവ്വീസുകൾ വേണമെന്ന ആവശ്യം കണക്കിലെടുത്താണ് പുതിയ സംവിധാനം

അത്യാവശ്യ യാത്രക്കാർക്കും വെയിറ്റിംഗ് ലിസ്റ്റിൽ ഉള്ളവർക്കും ക്ലോൺ സർവ്വീസ് കൂടുതൽ സഹായകരമാകും

ലോക്ഡ്ട്ടണിന്ന തുടർന്ന് തൊഴിൽ നഷ്ടപ്പെട്ട് സ്വന്തം നാട്ടിലേയ്ക്ക് മടങ്ങിയെത്തിയ കുടിയേറ്റ തൊഴിലാളികൾക്ക് തൊഴിൽ നൽകാൻ തയ്യാറാക്കിയ പദ്ധതിയാണിത്

രക്ഷാ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് ഭീവണ്ടിയിലെ കെട്ടിട അപകടത്തിൽ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ദുഖം രേഖപ്പെടുത്തി

സാമൂഹിക അക്കാദമിക കായിക വിനോദ സാംസ്കാരിക മത രാഷ്ടീയ ചടങ്ങുകൾക്കും അനുമതി നൽകും മാസ്ക് സാമൂഹ്യ അകലം തെർമൽ സ്കാനിങ് സാനിറ്റെസർ എന്നിവ നിർബന്ധമാണ്

അതേസമയം രോഗമുക്തി നിരക്ക് വർദ്ധിക്കുകയാണ്

ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ള മഹാരാഷ്ട്രയിൽ ചികിത്സയിൽ ഉള്ളവരുടെ എണ്ണം മൂന്നു ലക്ഷത്തോട് അടുക്കുന്നു

കർണാടകയിൽ ചികിത്സയിൽ ഉള്ളവരുടെ എണ്ണം ഒരു ലക്ഷത്തോട് അടുക്കുന്നു

ആന്ധ്രാപ്രദേശിൽ രോഗബാധിതരുടെ എണ്ണം ക്രമാതീതമായി വർധിക്കുകയാണ്

അതേസമയം കോവിഡ് രോഗമുക്തി നിരക്കിൽ ഇന്ത്യ ഒന്നാം സ്ഥാനത്ത് തുടരുന്നു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

സമാധിസ്ഥലമായ ശിവഗിരിയിലെ ശാരദാമഠത്തിലും മഹാസമാധിയിലും പുലർച്ചെ മുതൽ വിശേഷാൽ പൂജകൾ നടക്കുന്നു ശ്രീനാരായണ ധർമ്മ സംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി വിശുദ്ധാനന്ദയുടെ നേതൃത്വത്തിൽ കലശപൂജാഭിഷേകം മഹാസമാധി പൂജ പ്രാർത്ഥന എന്നിവയുണ്ടാകും കേരള സർക്കാർ തലസ്ഥാനത്ത് സ്ഥാപിച്ച ശ്രീനാരായണ ഗുരു ദേവന്റെ വെങ്കല പ്രതിമ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനാച്ചാദനം ചെയ്തു

സ്വർണ്ണ വിലയിൽ വർദ്ധന

എൽ ക്രിക്കറ്റിൽ ദുബായിൽ ഇ്ന്നൂലെ നടന്ന മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസിന് ജയം ഇന്ന്ലെ അവസാന പന്തുവരെ ആവേശം നിറഞ്ഞുനിന്ന മത്സരിത്തിൽ സൂപ്പർ ഓവറിൽ ഡൽഹി പഞ്ചാബിനെ തറപറ്റിച്ചു

ഇന്നത്തെ മത്സരത്തിൽ സൺ റൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ് സ് ബാംഗ്ലൂരിനെ നേരിടും